പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും ചിന്നക്കനാൽ ഭൂമി കൈയേറ്റം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ന് തിരിച്ചുവിളിച്ച നടപടി റദ്ദാക്കി

പട്ടിക ഇന്ന് പ്രഖ്യാപീക്കും

ജെ പി സ്ഥാനാർത്ഥികളെയും ഇന്ന് അറിയാം

തിരുവനന്തപുരത്ത് തുടക്കമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു

തിരുവനന്തപുരത്ത് എത്തിച്ചേരും പ്രധാനമന്ത്രി ഒരാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനം തികച്ചും ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈവിധ്യമാർന്ന നിരവധി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അത് രാജ്യത്തിന്റെ വികസനപാതയിൽ കൂടുതൽ ഉത്തേജനം പകരുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു രാഷ്ട്രത്തിന്റെ പരിവർത്തനത്തിനു വഴിതെളിച്ച വിവിധ വികസനപദ്ധതികളുടെ ആശയങ്ങൾ ഐക്യരാഷ്ട്രസഭയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു

ഹൌഡി മോദി പരിപാടി അവിസ്മരണീയമായിരുന്നുവെന്നും സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഭീകരവാദത്തെ ന്യായീകരിക്കുകയാണെന്ന് ഇന്ത്യ പറഞ്ഞു

എൻ പട്ടികയിലുള്ള ഭീകരർ പാകിസ്ഥാനിൽ ഇല്ലെന്ന് ഉറപ്പുതരാൻ കഴിയുമോ എന്ന് യു

ഭീകരർക്ക് പെൻഷൻവരെ നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അവർ പറഞ്ഞു

ജമ്മു കാശ്മീരിൽ ഇന്ത്യ എടുത്ത തീരുമാനം അവിടത്തെ ജനങ്ങളെ മുഖ്യധാരയിലേയ്ക്ക് കൊണ്ടുവരാനാണെന്നും ഇന്ത്യ വ്യക്തമാക്കി

നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും

മലയാള പരിഭാഷ കേരള നിലയങ്ങളിൽ രാത്രി എട്ടിന് കേൾക്കാം

അന്വേഷണസംഘത്തിലെ പത്തുപേരെയും തിരിച്ചുവിളിച്ചു നടപടി വിവാദമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ ഇവരെ വീണ്ടും പ്രത്യേക അന്വേഷണസംഘത്തിൽ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ചിന്നക്കനാലിൽ വ്യാജപട്ടയം നിർമിച്ച്ചു ഭൂമി കൈയേറിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുംബൈ ആസ്ഥാനമായ കമ്പനികളുടെ പട്ടയങ്ങൾ റദ്ദാക്കിയിരുന്നു ചിന്നക്കനാലിൽ ദേവികുളം സബ്കളകൂറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനിയും നടത്തിവരികയായിരുന്നു

സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി നഗരസഭ കൌൺസിൽ യോഗം ചേർന്നു പൊളിക്കാനായി സംസ്ഥാന ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ സബ്കലക്ടർ കൂടിയായ നഗരസഭാ സെക്രട്ടറി സ്നേഹിൽകുമാർ നഗരസഭയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്ന് മരട് നഗരസഭ ഗവൺമെന്റിന് പരാതി നൽകി ഉപതിരഞ്ഞെടുപ്പ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിലും മുന്നണികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി അഞ്ചിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൽ

എഫ് മണ്ഡലത്തിൽ വാഹനജാഥകളും സ്ഥാനാർത്ഥി പര്യടനവും ആരംഭിച്ചു

ഡി എഫ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുവെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് ഹൈക്കമാന്റാണ് പ്രഖ്യാപിക്കുക മഞ്ചേശ്വരത്ത് ലീഗ് സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി

ബിജെപി പാർലമെന്ററി ബോർഡ് ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും

ചിഹ്നം അനുവദിക്കാൻ തയ്യാറായിട്ടും ചിഹ്നമില്ലാതെ മത്സരിച്ച് ജയിക്കാമെന്ന വിശ്വാസമാണ് തോൽവിക്കു കാരണമെന്ന് ജോസഫ് കോട്ടയത്ത് പറഞ്ഞു

മറുപടികൾ ആരെ സഹായിക്കുമെന്ന് തിരിച്ചറിവുള്ളതു കൊണ്ടാണ് മറുപടി പറയാത്തതെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു അതേസമയം മന്ത്രിസ്ഥാനം പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പാലായിൽ നിന്നും വിജയിച്ച മാണി സി കാപ്പൻ പറഞ്ഞു ഊരുണർത്തൽ ഇൻഡ്രോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ഇടുക്കിയിലെ മറയൂരിൽ അടുത്തമാസം ഒന്നിന് ബാലാവകാശ കമ്മീഷൻ ഊരുണർത്തൽ നടത്തും വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആൻണി മുനിയറ

ഓൾ കേരള അകാ ആൻഡ് പെറ്റ്ഷോ യുടെ ഉദ്ഘാടനവും മന്ത്രി നിർപഹിച്ചു ബത്തേരി സമരം ദേശീയപാതയിലെ യാത്ര നിരോധനം പിൻവലിക്കണമെന്നാവശൃപ്പെട്ട് യുവജന സംഘടനകൾ ബത്തേരിയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം നാലാം ദിവസത്തിലേക്ക് വയനാടൻ ജനതയുടെ സഞ്ചാര സ്വാതന്ത്യം ഉറപ്പാക്കാനാണ് സമരം

ടൂറിസം മേഖലയിലെ വിദഗ്ധർ സമ്മേളനത്തിൽ വിവിധ യോഗങ്ങളിൽ സംസാരിക്കും

പാലക്കാട് ജില്ലയിലെ ആദ്യ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കോങ്ങാട് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ജെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി ജഗന്നിവാസൻ

ഒക്ടോബർ എട്ടിന് വിജയദശമി ദിനം വരെ പ്രത്യേകപൂജകളും ആഘോഷപരിപാടികളും നടക്കും

പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സംഗീതധാരയുടെ വിഭിന്ന സ്വരങ്ങളെ ഹൃദ്യമായി അവതരിപ്പിക്കാൻ ലതാ മങ്കേഷ്കറിനായി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാടി അവർ കാലദേശഭേദമന്യേ എല്ലാവരുടെയും മാറി മലയാളത്തിൽ നെല്ല് എന്ന ചിത്രത്തിലെ കദളി ചെങ്കദളി എന്ന ഗാനമാണ് ലതാമങ്കേഷ്കർ ആലപിച്ചത്

പേവിഷബാധ നിർമാർജനം ചെയ്യാൻ വളർത്തു മൃഗങ്ങൾക്ക് നിർബന്ധമായും വാക്സിനേഷൻ നൽകൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ദിനത്തോട് അനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

കിഫ്ബിയെ സംബന്ധിച്ച് സുതാര്യമാണെങ്കിൽ കേരളാ ഗവൺമെന്റ് എന്തിനാണ് സി

ജി ഓഡിറ്റിന് മടികാണിക്കുന്നതെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു